സൂക്ഷ്മപരിശോധന നാളെ

ഉഭയകക്ഷി വിഷയങ്ങൾ കോവിഡാനന്തര ലോകത്തെ സഹകരണം ശക്തമാക്കുന്നത് എന്നിവ ചർച്ചാവിഷയമാകും പരസ്പര താത്പര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു നേതാക്കളും സംവാദം നടത്തും രണ്ട് പതിറ്റാണ്ടിനിടെ ഇരുരാഷ്ട്രങ്ങളിലേയും തലവന്മാർ തമ്മിൽ നടത്തുന്ന ആദ്യ പ്രത്യേക കൂടിക്കാഴ്ചയാണിത്

കോവിഡാനന്തര ലോകം നേരിടാനിടയുള്ള പ്രധാന വെല്ലുവിളികളെ കുറിച്ച് ഉച്ചകോടി ചർച്ച ചെയ്യും ഓസ് ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും

ന്യൂസ്ഡസ്ക് ആകാശവാണി

അമേരിക്കൻ ഔഷധ കമ്പനിയായ ഫൈസറും ജർമ്മൻ പങ്കാളിയായ ബയോഎൻടെകും സംയുക്തമായാണ് ആർ

എ അധിഷ്ഠിത വാക്സിൻ വികസിപ്പിച്ചത്

പൊതുശുചിത്വ ശൌചാലയങ്ങളുടെ പ്രധാന്യം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം കേന്ദ്രജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും

ഗോവയിലെ ആദ്യ വനിത ഗവർണറായിരുന്നു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ അനുശോചിച്ചു

ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചുടിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു

കോവിഡിനെ തുടർന്ന് മാറ്റിവച്ച മേള അടുത്ത വർഷം ജനുവരിയിൽ ഗോവയിൽ നടക്കും

ശനിയാഴ്ച ആഘോഷങ്ങൾ സമാപിക്കും

ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്ന വിജിലൻസിന്റെ അപേക്ഷയും ഇന്ന് പരിഗണിക്കും

വൈദ്യുതി പോലെ പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത ബദൽ ഊർജ്ജം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നടപടി

ഈ മാസം പത്തിന് ചേർന്ന സൌദി ഇറാഖി സഹകരണ കൌൺസിലിന്റെ തീരുമാനപ്രകാരമാണ് നടപടി

തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത

മലയോരമേഖലയിൽ ഇടിമിന്നൽ തീവ്രമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം അറബിക്കടലിൽ ന്യൂനമർദം രൂപപ്പെടാൻ സാധൃതയുള്ളതിനാൽ ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽപോകരുത്

ഓഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിലായിട്ടാണ് പരമ്പര

ആക്ടിങ് പ്രതിരോധ സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറാണ് പ്രഖ്യാപനം നടത്തിയത്

ബി പാർട്നർഷിപ്പ് ബോർഡ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം